സ്വാശ്രയ ഭാരത മുന്നേറ്റം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കേരളത്തിൽ രണ്ടാം നൂറുദിന് പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു

ഭാരത മാതാവിനായി രവീന്ദ്രനാഥ ടാഗോർ നടത്തിയ നിദാന്ത പരിശ്രമങ്ങളുടെയും അദ്ദേഹം പുലർത്തിയ ഉയർന്ന ആദർശങ്ങളുടെയും ഉദാത്ത രൂപമാണ് വിശ്വഭാരതി സർവ്വകലാശാല എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു സർവ്വകലാശാല നൂറാം വയസ്സിലേക്ക് കടക്കുന്ന ഈ മുഹൂർത്തം എല്ലാ ഭാരതീയനും അഭിമാനം പകരുന്നതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര സൌരോർജ്ജ സഖൃത്തിലൂടെ കാലാവസ്ഥ സംരക്ഷണത്തിനായുള്ള മുന്നേറ്റങ്ങൾക്ക് ഇന്ത്യ നേതൃത്വം നൽകുന്നതായി ശ്രീ മോദി അഭിപ്രായപ്പെട്ടു പാരിസ് ഉടമ്പടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ക്കൈവരിച്ച ചുരുക്കം ചില രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ത്യയെന്നും ്അദ്ദേ്ഹം ചൂണ്ടിക്കാട്ടി വെല്ലുവിളികളിൽ ഉഴറിയ ഇന്ത്യൻ സ്മൂഹത്തിന് നൂറ്റാണ്ടുകളോളം ആത്മവിശ്വാസം പകർന്നു ന്ൽകിയ ഭക്തിപ്രസ്ഥാനം നമ്മുടെ സ്വാതന്ത്രൃ സമരത്തിൽ പ്വലിയ പങ്കുവഹിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ധൈര്യവും ്അറിവും ദർശ്നവും ഉൌർജവും പകർന്നു നൽകാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഹിച്ചു പങ്ക് നിസ്തുലം ആയിരുന്നുവെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം അറിയിച്ചത്

ഡി എഫ് പ്രകടനപത്രിക സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഭൂരിഭാഗവും സർക്കാർ പ്രവർത്തികമാക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു

സർക്കാരിന്റെ ഇടപെടൽ ്ജനങ്ങൾക്ക് കൃതൃമായി പരിശോധിക്കാൻ ആകണം എന്ന ഉദ്ദേശത്തോടെയാണ് ഓരോ വർഷവും പ്രോഗ്രസ്സ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും അദ്ദേഹം അഭ്യിപ്രായപ്പെട്ടു

വിശദാംശങ്ങളുമായി അരവിന്ദ്

കൂടുതൽ ടെസ്റ്റുകൾ നടത്തുന്നത് രോഗം നേരത്തെ തിരിച്ചറിയാനും ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കാനും ഇതിലൂടെ മരണ നിരക്ക് കുറക്കാനും സഹായിക്കും കേരളം മഹാരാഷ്ട്ര ഉത്തർ പ്രദേശ് പശ്ചിമ ബംഗാൾ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവുമധികം കോവിഡ് രോഗികൾ നിലവിൽ ചികിത്സയിലുള്ളത്

രോഗ വ്യാപനം തുടരുന്ന സാഹചര്യത്തിലും വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചുട്ടുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ജനങ്ങൾ തികഞ്ഞ ജാഗ്രതയോടെ ്ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ നടത്തണമെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അഭ്യർത്ഥിച്ചു

എട്ടു കോടിയോളം പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്

ഉപഭോക്താവ് എന്ന നിലയിൽ വ്യക്തിക്കുള്ള അവകാശം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനുള്ള ആഹ്വാനമാണ് ഉപഭോക്തൃദിനം നൽകുന്നത്

പര്യടനത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് വൈകീട്ട് തിരുവനന്തപുരം ജിമ്മി ജോർജ്ജ് സ്റ്റേഡിയത്തിലാണ് പരിപാടി വിവിധ മേഖലകളിലെ നൂറോളം പ്രമുഖരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച്ച നടത്തും

സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് അതേസമയം ആദ്യം രോഗം റിപ്പോർട്ട് പ്രെയ്ത മുണ്ടിക്കൽത്താഴം കോട്ടാംപ്പറമ്പിൽ നിന്നും ശേഖരിച്ചു ് ജലത്തിന്റെ സാമ്പിളിൽ ഷിഗെല്ലയുടെ സാന്നിധ്യം ക്ക്ണ്ടത്തിയതായി ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി

ഉദ്ഘാടന തീയതി പിന്നീട് അറിയിക്കും

അഞ്ച് ആറ് സെമസ്റ്റർ ക്സാസുകളും ഗവേഷണ ക്സാസുകളും പി

മറ്റ് സെമസ്റ്റർ ക്ലാസുകളെ പറ്റി പിന്നീട് തീരുമാനമെടുക്കും

എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് പാഠഭാഗങ്ങൾ കുറക്കേണ്ടെന്ന് ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു

രവീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു

ദർശനത്തിന് വരുന്നവർ കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം

ഹൃദയാഘാതത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരുന്നു ഇന്നലെ രാത്രിയായിരുന്നു അന്തൃം സൂഫിയും സുജാതയും കരി എന്നീ ചിത്രങ്ങളുടെ സംവിധായകൻ ആയിരുന്നു

എം ഡി അലി അസ്ഗർ പാഷ അറിയിച്ചു

ആറ് മാസത്തിൽ കൂടുതലായി റിട്ടേണുകൾ സമർപ്പിക്കാത്തവരുടെ ജി